രോഗബാധ സ്ഥിരീകരിച്ചവരിൽ നാല് ആരോഗ്യ പ്രവർത്തകരും

ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് കരസേനാ മേധാവി എം

ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ സുരക്ഷാസേന രണ്ട് ഭീകരരെ വധിച്ചു

അൺലോക്ക് വൺ ആരംഭിച്ച ശേഷം കോവിഡ് സ്ഥിതി ഗതികൾ അവലോകനം ചെയ്യുന്നതിനായി ആദ്യമായാണ് മുഖ്യമന്ത്രി മാരുടെ യോഗം വിളിക്കുന്നത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ യായിരിക്കും ചർച്ചു

കേരള മുഖ്യമന്ത്രി പിണറായിട്ട് പിജയൻ ചൊവ്വാഴ്ചത്തെ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് സൂച്ചെന്റ് രാജ്യത്ത് കൊറോണ വ്യാപനം ആരംഭിച്ചശേഷം മുഖ്യമന്ത്രിമാരു മായി പ്രധാനമന്ത്രി നടത്തുന്ന ആറാമത്തെ കൂടിക്കാഴ്ചയാണ് ഇത്

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി

ഡൽഹിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ എന്നിവർ നാളെ യോഗം ചേരും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച ഉണ്ടായെന്ന സൂപ്രീം കോടതി വിമർശനത്തിന് പിന്നാലെ യാണ് യോഗം ന്യൂസ് ഡെസ്ക് ആകാശവാണി

നേതാവും ശ്രീപെരുമ്പത്തൂർ എം

യുമായ കെ

ഇദ്ദേഹത്തിന്റെ ആരോഗ്യൂനില് തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു

പ്രദേശം റെഡ് സോണായി പ്രഖ്യാപിച്ചതായി ലഫ്റ്റനന്റ് ഗവർണറുടെ ഉപദേശകൻ ഉമംഗ് നരൂല അറിയിച്ചു

കുവൈത്തിൽ നിന്ന് നാലും അബുദാബി ദോഹ ദമാം എന്നിവിടങ്ങളിൽ നിന്ന് ഒന്ന് വീതവും വിമാനങ്ങൾ എത്തിച്ചേരും

ഇരുഭാഗത്തും സൈനിക പിൻമാറ്റം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്

കോവിഡ് പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ ശരീര താപനില കണ്ടെത്താനും യാത്രക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ നൽകാനും ഈ റോബോട്ടിന് കഴിയും കേന്ദ്ര റെയിൽ ഡി ജി

സംസ്ഥാനത്ത് ഇന്ന് പുതിയതായി രണ്ട് ഹോട്ട് സ്പോട്ടുകളാ ണുള്ളത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ പാപ്പിനിശ്ശേരി എന്നിവയാണ് പുതിയ ഹോട്ട് സ്പോട്ടുകൾ

മിഥുന മാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും

ജമ്മു കാശ്മീരിലെ കുൽഗ്ഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സൈന്യം രണ്ട് ഭീകരരെ ശ്ചധിച്ചു ഇന്ന് പുലർച്ചെയാണ് കുൽഗാമിലെ നിപോര മീർബസാർ മേഖലകളിൽ ഏറ്റുമുട്ടലുണ്ടായത് പൊലീസും സുരക്ഷാസേനയും സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ ആയുധ ങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്

രാജ്യത്തെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരിൽ ഒരാളും ഭരണഘടന വിദഗ്ധനും ആണ്

ദേവഗൌഡ മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ കർണാടകയിൽ നിന്നും എതിരില്ലാതെ രാജ്യസഭയിലേയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഇവർ ഉൾപ്പെടെ നാല് പേരാണ് സംസ്ഥാനത്തുനിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്

ബെയ്ജിംഗിലാണ് പുതിയ കേസുകൾ റിപ്പോർട്ട് ക്ഷ്യ്തത്

ലോക വ്യാപകമായി മരുന്നിന്റെ ലഭ്യത ഉറപ്പാക്കുകയും വേണമെന്ന് ന്യൂയോർക്കിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു

മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

അന്താരാഷ്ട്ര യോഗദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ആയുഷ് മന്ത്രാലയവും ഐ

ആർ യും ചേർന്നാണ് മത്സരം സംഘടിപ്പിക്കുന്നത്